വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ട്ടിറ്ററിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ ബ്രസീൽ ടർക്കി എന്നീ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തൽ വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രി നേതാക്കളുമായി ചർച്ച നടത്തി

പ്രതിരോധർ സമുദ്രരംഗം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും ശ്രീ മോദി ചർച്ച ചെയ്തു

ടർക്കി പ്രസിഡന്റ് തയിപ് എർദോഗനുമായും പ്രധാനമന്ത്രി വിവിധ വിഷ്ടയങ്ങൾ ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജീവിതത്തിന്റെ എല്ലാ തുറകളിലും തങ്ങളുടെ മുഴുവൻ കഴിവുകളും പ്രകടിപ്പിക്കാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നത് മുന്നിൽകണ്ടുള്ള നയത്തിനാണ് മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നത് ലോക്സഭയിൽ ചോദൃത്തിന് രേഖാമൂലം മറുപടി നൽകവെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയാണ് ഇക്കാര്യം അറിയിച്ചത് ആരോഗ്യം ഭക്ഷ്യസൂരക്ഷാ വിദ്യാഭ്യാസം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങി സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് കരട് നയം തയ്യാറാക്കിയിരിക്കുന്നത്

ഗുണമേന്മ വർദ്ധിപ്പിക്കൽ തൊഴിൽ ലഭ്യമാക്കൽ സംരംഭകത്വം ഉന്നത വിദ്യാഭ്യാസത്തിന് ഫണ്ട് സമാഹരണം ഭരണനിർവ്വഹണ പരിഷ്ക്കാരം തുടങ്ങി വിവിധ മേഖലകളുടെ നവീകരണത്തിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്

ഇതിന്റെ ഭാഗമായി നൈപുണ്യ വ്യിക്സന് പരിശീലനം സ്കോളർഷിപ്പ് സാമ്പത്തിക സഹായം എന്നീവയ്ക്ക് ഗവൺമെന്റ് ഊന്നൽ നൽകുമെന്നും കേന്ദ്രമന്ത്രി ്അറിയിച്ചു രാജ്യസഭയിൽ ആർ ജെ ഡി എം പി മനോജ് ത്സാ ഉന്നയിച്ച പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി

നിരവധി പ്പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ഒൻപത് പുരുഷൻമാരും ഒരു സ്ത്രീയും നാല് കുട്ടികളും ഉൾപ്പെടുന്നു

മൂന്ന് പേർ ഇപ്പോഴും അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ളവർ എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ് മുംബൈയിൽ ഇന്നലെ കനത്ത മഴയെ തുടർന്ന് മൂന്ന് പേർ മരിക്കുകയും അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു

തെലങ്കാന മുഖൃമന്ത്രി കെ ചന്ദ്രശേഖര റാവു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ

ജഗൻമോഹൻ റെഡ്ഡി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത തല യോഗത്തിലാണ് തീരുമാനം കൃഷ്ണ നദിയിൽ ആരംഭിച്ച ശ്രീശൈലം പദ്ധതിയിലേക്ക് ഗോദാവരി നദീജലം തിരിച്ചുവിടാനും ധാരണയായി ഇതിനായുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ ഉദ്യോഗസ്സ്ത്രോട് നിർദ്ദേശിച്ചിട്ടുണ്ട്

രണ്ട് തെലുങ്കു സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ വേണ്ട നടപടി സ്പീകരിക്കാൻ ഇരു മുഖ്യമന്ത്രിമാരും തീരുമാനിച്ചതായി ഇരുമുഖ്യമന്ത്രിമാരുടെയും യോഗം ഇന്നും തുടരും

ഷില്ലോങ്ങിൽ നടന്ന ചടങ്ങിൽ മേഘാലയ ഗവർണർ റ്ററ്റാഗട്ട് റോയ് മെഡലുകൾ സമ്മാനിച്ചു

മികച്ച പ്രവർത്തനങ്ങൾ ഇനിയും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ന്രേന്ദ്രമോഹൻ ഹോൾഡ് വോയിസ് ലീഡ്സിൽ ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടും രണ്ടാമത്തെ മത്സരത്തിൽ വൈകിട്ട് ആറിന് ആസ്ട്രേലിയ ന്യൂസിലന്റിനെ ലണ്ടനിൽ നേരിടും ഇന്നത്തെ ടീമുകളിൽ ആസ്ട്രോലിയ മാത്രമാണ് സെമിയിലേക്ക് പ്രവേശനം നേടിയത്

ഏഴ് കളികളിൽ നിന്നും ഏഴ് പോയിന്റുമായി പാകിസ്ഥാൻ ആറാം സ്ഥാനത്താണ് ഉള്ളത് പാകിസ്ഥാന് സെമി സാധ്യത ഉറപ്പാക്കാൻ ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ് ഇന്ത്യ നാളെ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും

സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം

ഭൂകമ്പം മുഖേന രാജ്യത്തിന് ഉണ്ടാകുന്ന ജീവനും മറ്റ് നാശനഷ്ടങ്ങൾക്കും ആശങ്ക ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഭൂചലനത്തിന് സാധ്യതയുള്ള മേഖലകളിൽ അതിനെ പ്രതിരോധിക്കാൻ തക്കമുള്ള കെട്ടിടങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഗവൺമെന്റ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

അടുത്ത മാസം രണ്ട് മുതൽ ആറ് വരെയാണ് ഷെയ്ഖ് ഹസീന ചൈന സന്ദർശിക്കുന്നത്